ആഗോളതലത്തിൽ ഇന്ത്യ അഭിമാനിക്കുന്നെന്ന് അംബേദ്കർ ജയന്തിദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കർശന നിയന്ത്രണങ്ങളുമായി സർക്കാർ

രേഖപ്പെടുത്തി രാജ്യം വ്യാക്സിൻ യജ്ഞം തുടരുന്നു ലോകത്ത് നിലവിൽ രണ്ടരക്കോട്ടിയേളം കോവിഡ്ബാധിതർ

മന്ത്രിസ്ഥാനം രാജിവെച്ച കെ ടി ജലീലിന്റേത് ധാർമികത ഉയർത്തിപ്പിടിച്ചുള്ള സമീപനമാണെന്ന് സിപിഎം ഗത്യന്തരമില്ലാതെയാണ് ജലീലിന്റെ രാജിയെന്ന് പ്രതിപക്ഷം

ആഘോഷമാക്കി മലയാളികൾ

കേന്ദ്രകാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്

ഗുജറാത്തിലെ ഡോ

അംബേദ്കർ സംസ്ഥാനം അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് കേരള നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ വി

വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്നുച്ചയ്ക്ക് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചത്തലത്തിലാണ് ചർച്ച നടത്തുന്നത്

കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി

പള്ളികളിലെ നിസ്ക്കാര ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് നിർവഹിക്കും ഇ പാസ് കോവിഡ് വ്യാപകമാകുന്നതിനാൽ കേരള തമിഴ്നാട് അതിർത്തിയായ നാടുകാണി ചെക്ക്പോസ്റ്റിൽ കർശന നിയന്ത്രണമേർപ്പെടുത്തി തമിഴ്നാട് സർക്കാർ

ഊട്ടിയിലെ സസ്യോദ്യാനം ബോട്ട് ഹൌസ് റോസ് ഗാർഡൻ കൂനൂർ സിംസ് പാർക്ക് എന്നീ കേന്ദ്രങ്ങളിലും നിയന്ത്രണമേർപ്പെടുത്തി

ഇന്ന് വൈകീട്ടോടെ അദ്ദേഹത്തിന് ആശുപത്രി ് വിടാനാകുമെന്ന് അധികൃതർ അറിയിച്ചു

കഴിഞ്ഞവർഷം ലോക്ഡൌൺ അടക്കമുള്ള കോവിഡ് നിയന്ത്രണങ്ങൾകൊണ്ട് വിഷു ആഘോഷങ്ങൾ പൂർണമായും വീടുകളിൽ ഒതുങ്ങിയിരുന്നു

പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയുമുൾപ്പെടെയുള്ള പ്രമുഖർ എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ നേർന്നു

നാലമ്പലത്തിനുള്ളിലാണ് ഇത്തവണ വിഷുക്കണി ഒരുക്കിയത്

സമ്പൽ സമൃദ്ധമായ വിഷുകണി ് ദർശനത്തിനായി ആയിരങ്ങളാണ് ശബരീശ സന്നിധിയിൽ എത്തിയത്

തുടർന്ന് അഞ്ചര മുതൽ ഏഴ് വരെയാണ് സന്നിധാനത്ത് ഭക്തർക്കായി വിഷുക്കണി ദർശനം ഒരുക്കി

ഇന്നലെ മരണസംഖ്യ ആയിരം പിന്നിട്ടു

നിലവിൽ രണ്ടരകോടിയോളം പേരാണ് ചികിത്സയിലുള്ളത്

ആഗോളതലത്തിൽ അമേരിക്കക്ക് പിന്നിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് കൃഷ്ണികൾക്കുകയും എ വിജയരാഘവൻ മന്ത്രിസ്ഥാനം രാജിവെച്ച കെ ടി ജലീലിന്റേത് ധാർമികത ഉയർത്തിപ്പിടിച്ചുള്ള സമീപനമാണെന്നും തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും എൽ ഡി എഫ് കൺവീനറും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുമായ എ വിജയരാഘവൻ പൊതുജീവിതത്തിൽ മാന്യത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹമെന്നും രാജിവച്ചു എന്നതുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് ജലീലോ പാർട്ടിയോ അംഗീകരിച്ചിട്ടില്ലെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു

അദ്ദേഹം പ്രോസിക്യൂഷനെ നേരിടണമെന്നും ജലീലിന് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്നതിനും സ്വജനപക്ഷപാതം നടത്തുന്നതിനും ഒത്താശ്ശ ചെയ്ത മുഖ്യമന്ത്രിയും ഈ കേസിൽ കൂട്ടു പ്രതിയാണെന്നും പ്രിത്യപ്ക്ഷനേതാവ് പറഞ്ഞു

ഇടിമിന്നലും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിച്ചിട്ടുണ്ട്

വോയിസ് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്

ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ ത്ന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം

ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക തുടങ്ങിയ നിർദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് അതേസമയം മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല എന്നുള്ളതുകൊണ്ടുതന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുതെന്നും നിർദേശത്തിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡസ്ക് ആകാശവാണി കൃഷകകകകക പോസ്റ്റൽ ബാലറ്റ് വിതരണം ചെയ്ത പോസ്റ്റൽ ബാലറ്റുകളുടെ വിശദാംശങ്ങൾ പുറത്ത് വിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്ത് നൽകി

വി അബ്ദുൾ വഹാബ് കെ

ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് എൽഡിഎഫിന് രണ്ടു പേരെയും യുഡിഎഫിന് ഒരാളെയുമാണ് ജയിക്കാൻ കഴിയുക